പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി കൂടിക്കാഴ്ച നടത്തും

അഫ്ഗാനിസ്ഥാനിൽ പീപ്പിൾസ് പീസ് മൂവ്മെന്റ് മുന്നോട്ട് വച്ച വെടിനിർത്തൽ ആഹ്വാനത്തെ താലിബാൻ തള്ളി

ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പുരുഷ വിഭാഗം ഫൈനൽ ഇന്ന്

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ആസ്ട്രേലിയ പോരാട്ടം ്

സൌഹൃദരാജ്യങ്ങൾക്ക് ആവിശ്യ്മുള്ളപ്പോൾ ഇന്ത്യ ഒരിക്കലും അവരെ വിസ്മരിക്കില്ലെന്നും പ്രൂധാന്മന്ത്രി പറഞ്ഞു തനിക്ക് ലഭിച്ച സ്വീകരണം ഹൃദയസ്പർശിയായിരുന്നുവെന്നും പ്രധാനമന്ത്രി കുറിച്ചു ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി ശ്രീ മോദി കൂടിക്കാഴ്ച പ്രതിപക്ഷനേതാവ് നടത്തും

ശ്രീലങ്കൻ യാത്രക്കുമുമ്പ് മാലിദ്വീപിൽ തനിക്ക് ലഭിച്ച വരവേൽപ്പിന് അദ്ദേഹം നന്ദി പറഞ്ഞു ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ സന്ദർശനം വഴിവച്ചതായി പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

വൈകുന്നേരത്തോടെയാണ് പ്രധാനമന്ത്രി തിരുപ്പതിയിലെത്തുക പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുപ്പതി ക്ഷേത്ര പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലദ്വീപ് സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ തീരുമാനം കൂടുതൽ വിശദവിവരങ്ങളുമായി ലിൻസ വോയിസ് പ്രാദേശിക സഹകരണത്തിനും വികസനത്തിനും ഊന്നൽ നൽകാനും രാഷ്ട്രനേതാക്കളും ധാരണയിലെത്തി മേഖലയിൽ ഇരു ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ തുടരുമെന്ന് ഇവർ അസന്നിഗ്ദ്ധമായി പ്രഖ്യാപിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ അറിയിച്ചു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമാധാനവും സുരക്ഷയും നിലനിർത്താൻ ആവശ്യമായ നടപടികൾ കൈകൊള്ളുമെന്ന് ഇരു രാജ്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് നേരത്തെ മാലിദ്വീപ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവെ ഭീകരവാദം അവസാനിപ്പിക്കാൻ ആഗോള സമ്മേളനം നടത്തണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു കാലാവസ്ഥാ വൃതിയാനം നേരിടാൻ യോജിച്ച പ്രവർത്തനം നടത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു കൊച്ചിക്കും മാലിക്കുമിടയിൽ ഫെറി സർവ്വീസ് ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി നയതന്ത്രതല ചർച്ചകൾക്കുശേഷം ഇരുരാജ്യങ്ങളും ആറ് കരാറുകളിൽ ഒപ്പുവച്ചു സന്ദർശനത്തിനിടയിൽ ഉന്നത പുരസ്ക്കാരമായ നിഷാൻ ഇസുദീൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാലിദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹീം മുഹമ്മദ് സ്വാലിഹ് സമ്മാനിച്ചു

നരേന്ദ്ര മോദി നേതൃത്വം നൽകും കേന്ദ്ര ആയുഷ് മന്ത്രാലയമാണ് രാജ്യത്തുടനീളം നടക്കുന്ന അന്താരാഷ്ട്ര യോഗദിനാചരണത്തിന്റെ മുഖ്യ സംഘാടകർ

പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം ആഘോഷത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്ന് രഘുവർദാസ് പറഞ്ഞു

ഇതിന് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം

ഡിജിറ്റൽ സാമ്പത്തിക രംഗത്തിന്റെ സാധൃതകൾ പ്രയോജനപ്പെടുത്തികൊണ്ട് അംഗരാജ്യങ്ങൾക്കിടയിൽ വ്യാപാരം വാണിജ്യ സഹകരണം ഉറപ്പുവരുത്താനുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടന്നതെന്ന് അദ്ദേഹം ട്ടീറ്റ് ചെയ്തു ദക്ഷിണകൊറിയ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലെ വ്യാപാര മന്ത്രിയുമായും ശ്രീ

മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ പാർട്ടി പ്രസിഡന്റുകൂടിയായ നിതീഷ് കുമാറിന്റെ അധ്യക്ഷതയിലാണ് ചർച്ച നടക്കുന്നത് ബീഹാറിന് വെളിയിൽ പാർട്ടിയുടെ അടിത്തറ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നടപടികളെ കുറിച്ചാണ് ഇന്നത്തെ യോഗത്തിൽ ചർച്ചചെയ്യുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി കെ

ഡൽഹി ജമ്മുകാശ്മീർ എന്നിവിടങ്ങളെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മൽസരിക്കുന്ന കാര്യവും ഇന്ന് ചർച്ചചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു

കൊടുങ്കാറ്റിലും മഴയിലും ഒരു മരണം

വൈദ്യുത ബന്ധവും തകരാറിലായതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു

ഇത് സംബന്ധിച്ച് ഇന്നലെ ഇരുവിഭാഗങ്ങളും നടത്തിയ ചർച്ച തീരുമാനമാകാതെ വെടിനിർത്ത്ൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് പിരിഞ്ഞു അഫ്ഗാനിലെ തെക്കൻ പ്രവിശ്യയിൽ ലോങ്മാർച്ച് പി

എന്നാൽ അമേരിക്കൻ സേന അഫ്ഗാനിസ്ഥാനിൽ നിന്നും പിൻമാറിയതിന് ശേഷം വെടിനിർത്തൽ പ്രഖ്യാപിക്കുമെന്ന് താലിബാൻ കമാന്റർ പറഞ്ഞതായി പി

അതേസമയം പീപ്പിൾസ് പീസ് മൂവ്മെന്റ് നടത്തിയ സമാധാന ശ്രമങ്ങളെപ്പറ്റി പ്രതികരിക്കാൻ താലിബാൻ വിസ്സമ്മതിച്ചു കാബൂിലെ യു

എമ്മിനെ നിയന്ത്രിക്കുന്നതെന്ന് നേരത്തെ താലിബാൻ ആരോപിച്ചിരുന്നു

ഈ നടപടി യു എസ് മെക്സിക്കോ അതിർത്തിയിലെ വ്യാപാരികൾക്ക് ഏറെ ആശ്വാസകരമാകും മൂന്ന് ദിവസത്തെ ഉന്നതതല യോഗത്തിന് ശേഷമാണ് അധിക നികുതി വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനമായത്

ഒരു റിപ്പോർട്ട്

സ്പെയിനിന്റെ റാഫേൽ നദാലും ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമും നേർക്കുനേർ ഇന്നലെ നടന്ന ആവേശകരമായ രണ്ടാം സെമിയിൽ തീം ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ചിനെ കീഴടക്കിയാണ് കലാശപ്പോരിന് യോഗ്യത നേടിയത് അഞ്ച് സെറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് തീമിന്റെ ജയം

വെള്ളിയാഴ്ച സ്വിസ് താരം റോജർ ഫെഡററിനെ പരാജയപ്പെടുത്തിയാണ് നദാൽ ഫൈനലിൽ കടന്നത്

ചെക്ക് റിപ്പബ്ലിക് താരം മർക്കേതാ വോൺറോസോവയെയാണ് ആഷ്ലി ഫൈനലിൽ പരാജയപ്പെടുത്തിയത്

ഇന്ത്യ ഓസ്ട്രേ ലിയ മത്സരം വൈകിട്ട് മൂന്ന് മണ്ണിക്ക് ഓവലിൽ ആരംഭിക്കും

ജെ

ആരോഗ്യം വിദ്യാഭ്യാസം വ്യവസായം അടിസ്ഥാന സൌകര്യം എന്നീ മേഖലകൾക്കാണ് ഊന്നൽ നല്കിയിട്ടുള്ളത് ധൂബ്രി ജില്ലയിലെ ഫുൽബരിയിൽ ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം നിർമ്മിക്കും ഇതിനായുള്ള പ്രോജക്ട് തയ്യാറാക്കി വരുകയാണ് കേന്ദ്ര ഗവണമെന്റിന്റെ ശ്രമഫലമായി അസമിൽ നിക്ഷേപ സൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ടുണ്ട് ന്യൂനപക്ഷ മേഖലയിൽ പെൺകുട്ടികൾക്കായി കോളേജുകൾ സ്ഥാപിക്കുമെന്ന് ഡോ

കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം തിരു്വന്ന്തപുരത്ത് വരും ദിവസങ്ങളിലും മഴ്ചൂർ അനുകൂല സാഹചര്യമാണുള്ളതെന്നും അറിയിപ്പിൽ പറയുന്നു അതിനിടെ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം ശക്തിയാർജ്ജിക്കാൻ സാധ്യതയില്ലെന്ന നിര്രീക്ഷണത്തെത്തുടർന്ന് നാല് ജില്ലകളിൽ പ്രഖ്യാപിച്ചു റെഡ് അലർട്ട് ്പിൻവലിച്ചിട്ടുണ്ട് ഇന്ന് കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു നാളെ എറണാകുളം മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്